പ്രതിഷേധം സഭ രണ്ടിലേറെ തവണ നിർത്തിവച്ചു

ബംഗളൂരുവിൽ തുടക്കം

കോൺഗ്രസ് ഡിഎംകെ തൃണമൂൽ തുടങ്ങി ഇടതു കക്ഷികൾ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുദ്രാവാക്യമുയർത്തി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി അച്ചടക്കം പാലിക്കാത്ത അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകർിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർല മുന്നകിയില്പ് നൽകി വിഷയം ശൂന്യവേളയിൽ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നുത്രിന്നിൽ സ്പീക്കർ സഭ ഏഴു മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു

കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രതിപക്ഷ പാർട്ടികൾ ഇന്നു രാജ്യസഭയിൽ വൃക്തമാക്കി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുളള നന്ദി പ്രമേയത്തിനിടെയാണ് കർഷക പ്രശ്നം ചർച്ചചെയ്യാൻ സമയം അനുവദിച്ചത് കർഷകർക്കെതിരായ ഒരുപോരാട്ടവും പാടില്ലെന്നും കാർഷിക നിയമങ്ങൾ സെലക്ട് കമ്മിറ്റിയ്ക്ക് വിടേണ്ടതായിരുന്നു എന്നും പ്രതിപക്ഷ കക്ഷി നേതാവ് ഗുലാം നബി ആസാദ് ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായം ഉന്നയിച്ചു

എം

നാളെയും ചർച്ച തുടരും

കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് ഗാംഗ്വാറാണ് ഇക്കാര്യം രാജ്യസഭയിൽ വൃക്തമാക്കിയത് തൊഴിൽ സമയം കൂട്ടണമെന്ന നിർദ്ദേശം തൊഴിൽ മന്ത്രാലയത്തിന് സ്വീകാര്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു

യലഹങ്കയിലെ വ്യോമസേന താവളത്തിലാണ് മൂന്നു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം നടക്കുന്നത് പ്രതിരോധ സേനകൾക്കാവശ്യമായ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ സാന്നിധ്യമുറപ്പിച്ചതായി ശ്രീ

ഈ മേഖലയിൽ കയറ്റുമതി സാധ്യമായ വിധത്തിൽ രാജൃം ശേഷി കൈവരിച്ചതായും അദ്ദേഹം വൃക്തമാക്കി

ഇന്ത്യൻ മഹാസമുദ്ദ് ്മേഖലയിലെ സമാധാനം സുരക്ഷ സഹകരണം എന്ന പ്പൂമ്പേയത്തെ അടിസ്ഥാനമാക്കിയാണ് കോൺക്ലേവ് രാജ്യരക്ഷം മുന്തി രാജ്നാഥ് സിംഗ് കോൺക്ലേവിൽ പങ്കെടുക്കും

എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ആറുമാസത്തേക്ക് നീട്ടുന്നതും ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിന് സംവരണം അനുവദിക്കുന്നതുമുൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടു

കോവിഡ് പശ്ചാത്തലീത്തിൽ പരീക്ഷകളുടെ സമയക്രമത്തിൽ വന്ന മാറ്റവും റാങ്ക്ട് പ്ലൂീസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൽ വന്ന കാലതാമസവും മൂലമാണ് പുത്രീയ് തീരുമാനം പതിനൊന്നാം ശമ്പളകമ്മീഷൻ ശുപാർശ ചെയ്തുൾസ്പ്ള് പരിഷ്കരണം ഏപ്രിൽ ഒന്നു മുതൽ വിതരണം ചെയ്യാനും മ്യൂന്റിറ്റുഭ തീരുമാനിച്ചു

ബി സി സംവരണം നൽകാനും മന്ത്രിസഭ ്തീരുമാനിച്ചു നാടാർ ഹിന്ദു എസ് ഐ

സി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കുള്ള നിലവിലെ സംവരണത്തെ ബാധിക്കാത്ത രീതിയിലാവും ഇത് നടപ്പാക്കുക കെട്ടിടനിർമ്മാണ് അനുമതി വേഗത്തിലാക്കാൻ പഞ്ചായത്ത് മുനിസിപ്പൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനും തീരുമാനമുണ്ടായി മഹാത്മാഗാന്ധി അയ്യൻകാളി തൊഴിലുറപ്പ് പദ്ധതി കളിലൂടെ തൊഴിലെടുക്കുന്നവർക്ക് ക്ഷേമനിധി രൂപീകരിക്കുന്നതിന് ഓർഡിനൻസ് പൂറപ്പെടുവിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു

ജെ

ദേശീയ അധ്യക്ഷൻ ജെ

രണ്ട് ദിവസത്തെ കേരള സന്ദർശനായാണ് ശ്രീ

സംസ്ഥാനത്തെ എൽ

എഫും യു

എഫും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാനാണ് ബി ജെ

ദേശീയ അധൃക്ഷൻ തിരുവനന്തപുരത്തെത്തിയത്

നാളെ തൃശൂരിൽ നടക്കുന്ന പൊതു സമ്മേളനത്തിലും ശ്രീ

സർക്കാർ മാർഗ്ഗ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്നാണ് ടിറ്ററിന മുന്നറിയിപ്പ് നൽകിയത് അടിസ്ഥാനരഹിതമായ വസ്തുതകൾ പ്രചരിപ്പിക്കുന്നത് രാജ്യത്ത് ക്രമസമാധാന ഭീഷണിയുണ്ടാകുമെന്നും സർക്കാർ വ്യക്തമാക്കി

കേന്ദ്ര മന്ത്രിമാരായ നരേന്ദ്ര സിംഗ് തോമർ ധർമേന്ദ്ര പ്രധാൻ ഗിരിരാജ് സിംഗ് ഗജേന്ദ്ര സിംഗ് ശെഖാവത്ത് രത്തൻ ലാൽ കട്ടാരിയ എന്നിവർ ചേർന്നാണ് ഏകീകൃത വെബ് പോർട്ടൽ പ്രകാശനം ചെയ്തത്

ഗോവയിലാണ് മത്സരം പുരോഗമിക്കുന്നത്